കേസ് നാലാഴ്ച കഴിഞ്ഞ് കോടതി വീണ്ടും പരിഗണിക്കും

കേന്ദ്ര ഗവൺമെന്റിന്റെ വാദം കേൾക്കാതെ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നേതൃത്വം നൽകുന്ന ബെഞ്ച് വ്യക്തമാക്കി പൌരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ നാലാഴ്ചക്കകം മറുപടി നൽകാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഹർജികളിൽ വാദം കേൾക്കുന്നതിന് കൂടുതൽ ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുമെന്നും കോടതി അറിയിച്ചു

അസം ത്രിപുര എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികളും ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പ് പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്ന ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ഹർജികളും വെവ്വേറെ കേൾക്കുമെന്ന് കോടതി അറിയിച്ചു ഹർജികളിൽ സുപ്രീംകോടതി തീരുമാനമെടുക്കുംവരെ ഹൈക്കോടതികൾ ഇത്തരം കേസുകൾ അനുവദിക്കുന്നത് സുപ്രീംകോടതി വിലക്കി

പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെക്കണമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചു

ദേദ പൌരത്വ നിയമ ഭേദഗതിക്ക് എതിരായി സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി സമീപനം അനുകൂലമാകുമെന്നും നിരാശപ്പെടേണ്ടി വരില്ലെന്നുമാണ് കോടതി നടപടികൾ നിരീക്ഷച്ചതിൽ നിന്നും ബോധ്യമായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കോടതി വളരെ ഗൌരവത്തോടെയാണ് ഇത് കാണുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചട്ടങ്ങൾ രൂപീകരിക്കാതെ നടപടിയുമായി ഗവൺമെന്റിന് മുന്നോട്ടുപോകാൻ ആവില്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു

കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എം പിമാരും ചെന്നിത്തലക്കൊപ്പം സുപ്രീംകോടതിയിൽ ഹാജരായിരുന്നു

വിവര വിനിമയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി സമയബന്ധിതമായ ഭരണനിർവ്വഹണമാണ് പ്രഗതി

സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവലോകനം ചെയ്യുന്നതിനും ചർച്ച ചെയ്യുതിനുമുള്ള വേദിയാണ് പ്രഗതി കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികൾ യഥാസമയം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും അവലോകനം ആവിഷ്ക്കരിച്ചിട്ടുള്ളതാണ് പ്രഗതി സംവാദ പരിപാടി ദദദ പാർലമെന്റ് ബജറ്റ് സമ്മേളത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച സംസ്ഥാനത്തെ എം പിമാരുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും രാവിലെ തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് യോഗം

ദേദ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാജ്യവ്യാപകമായി റാലികളിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കും

വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ അറിയിച്ചു ദേദ നേപ്പാളിൽ വിനോദയാത്രക്കിടെ വിഷവായു ശ്വസിച്ച് മരിച്ച എട്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ ഏംബസിക്കാണ് നിർദ്ദേശം നൽകിയത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ആശുപത്രിയിലാണ് പോസ്റ്റുമോർട്ടം നടക്കുന്നത് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നേപ്പാൾ ഗവൺമെന്റ് സമഗ്ര അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ നാളെ എയർഇന്ത്യയുടെ രണ്ട് വിമാനങ്ങളിലായി കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് ദുരന്തത്തിൽ കോഴിക്കോട് കുന്ദമംഗലം സ്വദേശി രഞ്ജിത്കുമാർ ഭാര്യ ഇന്ദുലക്ഷ്മി പീതാംബരൻ മകൻ വൈഷ്ണവ് രഞ്ജിത് തിരുവനന്തപുരം ചെങ്കോട്ടുകോണം സ്വദേശി പ്രവീൺ കൃഷ്ണൻ നായർ ഭാര്യ ശരണ്യ ശശി മക്കളായ ശ്രീഭദ്ര പ്രവീൺ ആർച്ച പ്രവീൺ അഭിനവ് നായർ എന്നിവരാണ് മരിച്ചത് ദേദ കനത്ത മഞ്ഞുവീഴ്ച ഡൽഹിയിൽ ട്രെയിൻ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു

ദരദ സംസ്ഥാനത്ത് സെൻസസ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വൈകീട്ട് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും യോഗത്തിൽ തദ്ദേശ റവന്യൂ ഐ ടി പൊതുഭരണ സെക്രട്ടറിമാരും സെൻസസ് ഡയറക്ടർ അടക്കം ഉദ്യോഗസ്ഥരും പങ്കെടുക്കും

അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ

കേരളത്തിൽ നിന്ന് മൂന്നുപേരാണ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ആദിത്യ വടകര പുതുപ്പണത്തെ ഫത്താഹ് എന്നിവർക്കും മരണാനന്തര ബഹുമതിയായി തിക്കോടി സ്വദേശി മുഹമ്മദ് മുഹ്സിനുമാണ് അവാർഡ്

എന്നാൽ കൊച്ചുവേളി മുതൽ തൃശൂർ വരെ എത്തുന്ന സമയത്തിൽ മാറ്റമുണ്ടാവില്ല

ദേദ പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആലപ്പുഴ എറണാകുളം പാതയിൽ അടുത്തമാസം പത്തുവരെ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് റെയിൽവെ അറിയിച്ചു മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ഈ ദിവസങ്ങളിൽ എറണാകുളം ടൌൺ കായംകുളം ജംഗ്ഷൻ കോട്ടയം വഴി തിരിച്ചുവിടും എറണാകുളം ടൌൺ കോട്ടയം ചെങ്ങന്നൂർ സ്റ്റേഷനുകളിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്

അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളും കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജ്ജു രമേശ് തേലി എന്നിവരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും ബോക്സിംഗ് ഫുട്ബോൾ ടെന്നീസ് മത്സരങ്ങളിലാണ് ഇന്ന് ഫൈനൽ

എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ് സി ഇന്ന് ഒഡീഷ എഫ് സിയെ നേരിടും

ഗുണമേന്മയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ സെമിനാറുകൾക്ക് നേതൃത്വം നൽകും ദേദ മംഗലാപുരം വിമാനത്താവളത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആദിത്യ റാവു ബംഗളുരു ഡി ജി പി ഓഫീസിൽ കീഴടങ്ങി

ഇയാളെ വൈദ്യപരിശോധനക്ക് വിധേയമാക്കുമെന്ന് പൊലീസ് അറിയിച്ചു

ചോദ്യം ചെയ്യാനായി പ്രതികളെ ഇന്നലെ ആറുദിവസത്തെ എൻ

എ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ടെട മരട് അനധികൃത ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ദേവസ്സിക്കെതിരെ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഒരുഭ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ ലഭിച്ചവരുടെ കണ്ണൂർ ജില്ലാതല കുടുംബ സംഗമവും മെഗാ അദാലത്തും ഇന്ന് കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കും ഉച്ച കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും